പ്രവാസികളുമായി മൂന്ന് വിമാനങ്ങൾ ഇന്ന് കൊച്ചിയിലെത്തും

എസ് ജലാശ്വ നാളെ മാലിയിൽ നിന്ന് കൊച്ചിയിലെത്തും

ത ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് മൂവ്വായിരത്തോളം പേർ നാട്ടിൽ തിരിച്ചെത്തി

യാത്രക്കാരിൽ അഞ്ചു പേർ കുട്ടികളായിരുന്നു ഇവരെ ആരോഗ്യ പരിശോധനകൾക്കുശേഷം ജില്ലകളിലെ ക്വാറന്റൈൻ കേന്ദ്രങ്ങളിലേക്ക് കെ എസ് ആർ ടി

യാത്രക്കാരിൽ മൂന്ന് പേർ ബാംഗ്ലൂർ സ്വദേശികളും ഒരാൾ മധുര സ്വദേശിയുമാണ്

രുമ ഗൾഫിൽ കുടുങ്ങിയ പ്രവാസികളുമായി മൂന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ ഇന്ന് കൊച്ചിയിലെത്തും കുവൈറ്റ് മസ്ക്കറ്റ് ദോഹ എന്നിവിടങ്ങളിൽ നിന്നാണ് വിമാനങ്ങൾ പ്രവാസികളെ കൊണ്ടുവരുന്നത് ഇവരെ കയറ്റാൻ രാവിലെയും ഉച്ചയ്ക്കും വൈകീട്ടുമായി മൂന്ന് വിമാനങ്ങൾ ഗൾഫിലേക്ക് പോകും

പ്രവാസികളെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിൽ സജ്ജീകരണങ്ങളും എല്ലാ പൂർത്തിയായതായി മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അറിയിച്ചു ദുബായിൽ നിന്നാണ് പ്രവാസികൾ കണ്ണൂരിലെത്തുന്നത് രദര ഓപ്പറേഷൻ സമുദ്രസേതുവിന്റെ ഭാഗമായി മാലിയിൽ നിന്ന് ഇന്ത്യാക്കാരുമായി നാവികസേനാ കപ്പൽ ഐഎൻഎസ് ജലാശ്വ കൊച്ചിയിലേക്ക് പുറപ്പെട്ടു

കപ്പൽ നാളെ കൊച്ചിയിൽ എത്തുമെന്ന് നാവിക സേനാ കേന്ദ്രങ്ങൾ അറിയിച്ചു

പനിയും ചുമയും കണ്ടെത്തിയ ഒരാളെയും അലർജി കണ്ടെത്തിയ മറ്റൊരാളെയും മഞ്ചേരി മെഡിക്കൽ കോളജിലും ഗർഭിണിയായ ഒരാളെ കളമശേരി മെഡിക്കൽ കോളജിലേക്കും മാറ്റി അർബുദ ചികിത്സയിലിരിക്കുന്ന കൊല്ലം സ്വദേശിയെ കോഴിക്കോട് മെഡിക്കൽ കോളജിലാണ് പ്രവേശിപ്പിച്ചത്

ശേഷിച്ചവർ നഴ്സിങ്ങ് അസിസ്റ്റന്റുമാരും പാരാമെഡിക്കൽകാരും ക്ലീനിങ്ങ് സ്റ്റാഫുമാണ്

എസ് സി വഴി അടിയന്തരമായി നിയമിച്ചിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

ചെന്നൈയിൽ നിന്ന് ചികിത്സക്കെത്തിയ ഒരാളിലാണ് രോഗം കണ്ടെത്തിയത്

രുര കൊല്ലം ജില്ലയിൽ മൂന്ന് പേരാണ് രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിൽ കഴിയുന്നത്

എട്ടു പേരാണ് ആശുപത്രിയിൽ വിമാനമിറങ്ങി കൊല്ലം ജില്ലയിലേക്ക് വരുന്നവരെ പാരിപ്പള്ളി ഓച്ചിറ ഏനാത്ത് നിലമേൽ എന്നിവിടങ്ങളിൽ ചെക്ക്പോസ്റ്റ് സ്ഥാപിച്ച് പ്രവേശനം നിരീക്ഷിക്കും പ്രവാസികൾക്കായി ഏർപ്പെടുത്തുന്ന താമസ സൌകര്യങ്ങൾ ജില്ലാ കലക്ടർ നേരിൽ കണ്ട് വിലയിരുത്തി

കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഒ

പ്രവർത്തനം ഘട്ടങ്ങളായി പുനരാരംഭിക്കുമെന്ന് അധക്യതർ അറിയിച്ചു

യാത്രാപാസില്ലാതെ അതിർത്തി കടക്കാൻ ശ്രമിക്കരുതെന്നും സ്പോട്ട് എൻട്രി ഏത് സാഹചര്യത്തിലായാലും അനുവദിക്കില്ലെന്നും പാലക്കാട് ജില്ലാ കലക്ടർ ഡി ബാലമുരളി അറിയിച്ചു

മന്ത്രി എ

മൊയ്തീൻ ഗവൺമെന്റ് ചീഫ് വിപ് കെ രാജൻ ജില്ലാ കലക്ടർ ജില്ലാ പൊലീസ് മേധാവികൾ തുടങ്ങിയവർ തൊഴിലാളികളെ യാത്രയാക്കാൻ റെയിൽവെ സ്റ്റേഷനിലെത്തിയിരുന്നു

രുര സംസ്ഥാനത്ത് അഞ്ച് ദിവസം ഇടിമിന്നലോട് കൂടിയ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു തിങ്കളാഴ്ച കണ്ണൂർ വയനാട് കോഴിക്കോട് ജില്ലകളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു ഇടിമിന്നൽ അപകടമുണ്ടാകാതിരിക്കാൻ ജാഗ്രത വേണമെന്ന് ദുരന്തനിവാരണ അതോറിറ്റി അറിയിച്ചു

മാനന്തവാടി അപ്പപാറ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കീഴിൽ വരുന്ന ബേഗൂർ കോളനിവാസിയായ യുവാവിനാണ് കുരങ്ങുപനി സ്ഥിരീകരിച്ചത്

ഇതിൽ മൂന്ന് പേർ മരിച്ചു രുമ അട്ടപ്പാടിയിൽ പനി ബാധിച്ച് യുവാവ് മരിച്ചത് കോവിഡ് മൂലമല്ലെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു ഇയാളുടെ പരിശോധനാ ഫലം നെഗറ്റീവാണ്

യുവാവിന്റെ എലിപ്പനി പരിശോധനാ ഫലം രണ്ട് ദിവസത്തിനകം ലഭിക്കുമെന്നും ഡി എം ഒ അറിയിച്ചു

ഇന്ന് കാർഡ് നമ്പർ ഒന്നിൽ അവസാനിക്കുന്നവർക്ക് കിറ്റുകൾ വിതരണം ചെയ്യും രാര കണ്ണൂർ മഠപ്പുര ട്രസ്റ്റിയും ജനറൽ മാനേജറുമായ പി എം ഗംഗാധരൻ നിര്യാതനായി

രാവിലെ ചൊവ്വയിലെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചശേഷം പയ്യാമ്പലം പൊതുശ്മശാനത്തിൽ സംസ്ക്കരിക്കും